സുപ്രധാന പദ്ധതികൾക്ക് പ്രിധ്യാന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസ്ടിങ്ങിലൂടെ തുടക്കം കുറിക്കും

ഒരു കോടി പിന്നിട്ടു

ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ചൈന ഔദ്യോഗികമായി അംഗീകരിച്ചു

ഗവേഷണത്തിനും നൂതന കണ്ടുപിടുത്തങ്ങൾക്കും വിദ്യാഭ്യാസ നയം ഊർജ്ജം നൽകുമെന്നും വിശ്വഭാരതി സർവ്വകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർചലായി അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു വിശ്വഭാരതി കേവലം ഒരു സർവ്വകലാശാല മാത്രമല്ല മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ് നാനാത്വത്തിൽ ഏകത്വം നിലനിർത്താൻ നിരന്തരമായി പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനൂം ചെയ്തു വിജ്ഞാനം നിരന്തരമായി രൂപപ്പെട്ടുവരുണ്ണിതാണെന്നും അളവില്ലാത്ത അറിവിന്റെ ഉറവിടമാണ് സർവ്വകലാശാലകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഛത്രപതി ശിവജിയെക്കുറിച്ചുള്ള രൂപിീന്ദ്രനാഥ ടാഗോറിന്റെ വരികളും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചു

മുഖ്യമന്തി അധ്യക്ഷനാവുന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും

അരുവിക്കര ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവ്വഹിക്കും

ചാക്രിക സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഓസ്ട്രേലിയ ഹാക്കത്തോണിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേ ഹം

അഗത്തി വിമാനത്താവളം വഴി തലസ്ഥാന ദ്വീപായ കവരത്തിയിലെത്തിയ അദ്ദേഹം ലക്ഷദ്വീപ് അഡ്മിനിസ് ട്രേഷനിലെ വകുപ്പ് സെക്രട്ടറിമാരുമായി ഉന്നതതല യോഗം ചേർന്നു

നാളെയും മറ്റന്നാളുമായി സുഹേലി കടമത്ത് ബംഗാരം എന്നീ ദ്വീപുകളിലായി വൃത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും പ്രകൃതി ചൂഷണം തടയുന്നതിനും സംരക്ഷണ വലയത്തിലുള്ള കടൽ ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പ് സ്ത്രുത്തുന്നതിനും വേണ്ടി ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പ് ത്ലീത്തിൽ ആവിഷ്ക്കരിച്ച നൂതന പദ്ധതികളുടെ പ്രവർത്തിനു പുരോഗതി അദ്ദേഹം വിലയിരുത്തും

മറാത്തി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവജിയുടെ ധീരത എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി പ്രകാശ് ജാവദേക്കറും മറ്റ് കേന്ദ്ര മന്ത്രിമാരും ശിവജിയ്ക്ക് ആദരവർപ്പിച്ചു

ശക്തമായ മഞ്ഞു വീഴ്ചയെ തുടർന്നാണ് ഇവർ അപകടത്തിൽപ്പെട്ടതെന്ന് കരസേന അറിയിച്ചു

ഇവരെ കരസേനയുടെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്

ഒരു മാസത്തിനിടെ പ്രതിരോധ വാക്സിന്റെ ഒരു കോടിയിലധികം ഡോസുകളാണ് രാജ്യത്ത് വിതരണം ചെയ്തത്

അതോടൊപ്പം രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്കും ഉയരുകയാണ്

പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നതും ആശ്വാസകരമാണ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എൻ മനുഷ്യാവകാശ സമിതി പത്രക്കുറിപ്പുകളിലൂടെ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ഇന്തൃ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കുന്നതിന് മുമ്പ് വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസിലാക്കാൻ ശ്രമിക്കണമെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജൃഘടകമാണെന്ന വസ്തുത പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം മനുഷ്യാവകാശ സമിതി നടത്തിയിരിക്കുന്നത് കശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കി കേന്ദ്ര ഭരണപ്രദേശമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഇന്ത്യൻ പാർലമെന്റാണ് ഇതിലൂടെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം ജമ്മുകശ്മീരിലുള്ളവർക്കും ലഭിക്കുന്നു എന്ന വസ്തുത പരിഗണിക്കാതെയാണ് സമിതി ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഇറക്കിി്യുതെന്നും ശ്രീ

കാറക്കോറം മേഖലയിലുണ്ടായിരുന്ന ഈ അഞ്ച് സൈനികരുടെയും പേരുവിവരങ്ങൾ ഉൾപ്പെടെയാണ് ചൈനീസ് മിലിട്ടറി കമ്മീഷൻ വെളിപ്പെടുത്തിയത്

ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ്

മികച്ച രീതിയിൽ കാർണിവൽ സംഘടിപ്പിച്ച ഉദ്യോഗസ്ഥരെയും വകുപ്പുകളെയും കാർഗിൽ ടൂറിസം എക്സിക്യൂട്ടീവ് കൌൺസിലർ അഭിനന്ദിച്ചു

യുകെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നഗരങ്ങൾക്കാണ് മറ്റ് പുരസ്കാരങ്ങൾ

ചൊവ്വയിലെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനാണ് നാസയുടെ ഈ ദൌത്യം

പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഗ്രീക്ക് താരം സ്റ്റെഫാനോസ് സിറ്റ്സിപാസ് റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെ നേരിടും വനിത സിംഗിൾസ് ഫൈനലിൽ നാളെ ജപ്പാന്റെ നവോമി ഒസാക്ക അമേരിക്കൻ താരം ജെന്നിഫർ ബ്രാഡിയെ നേരിടും

രണ്ട് പാദമായി ന്ടക്കുന്ന സെമി ഫൈനലുകൾ മാർച്ച് അഞ്ചിനും ഒമ്പിതീനും ഇടയിൽ നടക്കും ബാംബോലിമിലെ ജി